വിവരങ്ങൾ കൈമാറുന്നതിന് നിയന്ത്രണം വിധി ചരിത്രപരമെന്ന് ധനമന്ത്രി അരുൺജെയ്റ്റ്ലി

സ്കൂൾ പ്രവേശനത്തിനും ബാങ്ക് അക്കൌ ിനും മൊബൈൽ കണക്ഷൻ നേടാനും ആധാർ നിർബന്ധമല്ലെന്നും സുപ്രിംകോടതി

രാജ്യത്തെ പഞ്ച്സാര ഉൽപാദനം നിയന്ത്രിക്കുന്നതിന് സമഗ്ര നയം വരുന്നു

ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യക്ഷനായ അഞ്ചംഗ ഭരണഘടനാ ബഞ്ചാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചത്

ആധാറിനായി ശേഖരിക്കുന്ന വിവരങ്ങൾ സംരക്ഷിക്കാൻ നിയമമു ാക്കണം ബയോമെട്രിക് വിവരങ്ങൾ കൈമാറാൻ പാടില്ലെന്നും കോടതി വ്യക്തമാക്കി സ്വകാര്യ കമ്പനികൾക്ക് ആധാർ വിവരങ്ങൾ കൈമാറാൻ പാടില്ല ആദായനികുതി റിട്ടേണിനും പാൻകാർഡ് ലഭിക്കാനും ആധാർ നിർബന്ധമാണ് ഗവൺമെന്റിന്റെ സാമൂഹ്യക്ഷേമ പദ്ധതികൾക്കും സബ്സിഡികൾക്കും ആധാർ നിർബന്ധമാകും പാവപ്പെട്ടവരെ ലക്ഷ്യമിട്ട് ഗവൺമെന്റ് നടപ്പാക്കുന്ന സാമൂഹ്യ ക്ഷേമ പദ്ധതികൾക്ക് ആധാർ നിർബന്ധമാക്കാൻ തടസ്സമല്ല മൊബൈൽ ഫോൺ കണക്ഷൻ ബാങ്ക് ആഅക്കൌ ് എന്നിവയ്ക്ക് ആധാർ നിർബന്ധമല്ല

ആധാർ നിയമത്തിലെ ദേശ്വീയ സുരക്ഷ സംബന്ധിച്ച വകുപ്പും സ്വകാര്യ കമ്പനികൾക്ക് വിവരങ്ങൾ കൈമാറാൻ അനുമതി നൽകുന്ന വകുപ്പും സുപ്രിര്കോടതി റദ്ദാക്കി സുപ്രിംകോടതി വിധി ചരിത്രപരമെന്ന് കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലി പ്രതികരിച്ചു രാജ്യമൊട്ടാകെ ഏകീകൃത നമ്പർ എന്നത് കോടതി അംഗീകരിച്ചതായി അദ്ദേഹം അവകാശപ്പെട്ടു എൻ ഡി എ ഗവൺമെന്റിന്റെ നടപടികൾക്കുള്ള അംഗീകാരമാണ് ഇതെന്നും അദ്ദേഹം പറഞ്ഞു

ക്ഷേമപദ്ധതികളുടെ വിതരണം കാര്യക്ഷമമാക്കിയതിലൂടെ തൊണ്ണൂറായിരം കോടി രൂപ ഗവൺമെന്റിന് ലാഭിക്കാൻ ആയെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആകാശവാണി

ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്രയുടെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ ഭരണഘടനാ ബഞ്ചാണ് വിധി പ്രസ്താവിച്ചത്

അറ്റോർണി ജനറൽ കെ കെ വേണുഗോപാൽ ഉദ്യോഗക്കയറ്റത്തിൽ സംവരണത്തിനായി ശക്തമായി വാദിച്ചെങ്കിലും സുപ്രിംകോടതി അംഗീകരിച്ചില്ല

കോടതി നടപടികൾ ത്രത്സമയം സംപ്രേക്ഷണം ചെയ്യുന്നത് ജനങ്ങളുടെ അറിയാനുള്ള അവകാശത്തെ മാനിച്ചാണെന്ന് കോടതി വൃക്തമാക്കി നിയമരംഗത്തെ സുതാര്യത ഉറപ്പ് വരുത്തുന്ന നടപടിയാണിത് രാജ്യത്തെ എല്ലാ കോടതിയിലും ഇത് മാതൃകയാക്കണമെന്ന് സുപ്രിംകോടതി നിർദ്ദേശം നൽകി തത്സമയ സംപ്രേക്ഷണത്തിനുള്ള ചട്ടങ്ങൾ രൂപീകരിക്കുന്നതിലൂടെ കോടതി നടപടികൾ ഇനി പരസ്യമാകും

ടെലി കമ്മ്യൂണിക്കേഷൻ മേഖലയിലെ പ്രശ്ന പരിഹാരത്തിന്റെ പുരോഗതി അദ്ദേഹം വിലയിരുത്തി അടുത്തിടെ നടന്ന സാങ്കേതികതാ പരിഷ്കാരങ്ങളുടെ പുരോഗതി വരെ പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചു ഉപഭോക്തൃ സംതൃപ്തി നിലവാരം സേവനദാതാക്കൾ ഏറെ ഉയർത്തണമെന്നും അദ്ദേഹം നിർദേശിച്ചു

പുതിയ ബിൽ പാർലമെന്റിന്റെ പരിഗണനയിലാണ് മെഡിക്കൽ കൌൺസിൽ ഓഫ് ഇന്ത്യയുടെ നിലവിലുള്ള ഭരണസമിതിയുടെ കാലാവധി ഉടൻ അവസാനിക്കും ആരോഗ്യരംഗത്തെ പ്രമുഖരെ ഉൾപ്പെടുത്തിയാണ് പുതിയ കമ്മിറ്റിക്ക് രൂപം നൽകുന്നത്

ഇന്ധനവിലയുടെ ക്രമാതീതമായ ആഭ്യന്തര ആവശ്യങ്ങൾക്കും വർധനവ് കയറ്റുമതിക്കും വ്യവസായികൾക്കും തിരിച്ചടിയാകും

തന്റെ മന്ത്രാലയം ഇതിലേക്ക് ഒട്ടേറെ നടപടികൾ കൈക്കൊ തായും അദ്ദേഹം പറഞ്ഞു ഛത്തീസ്ഗഡിലെ ദന്തേവാഡയിൽ നിന്നുള്ള വനിതാ സ്വയം സഹായ സംഘങ്ങളുടെ ശാക്തീകരണം ജൈവ കർഷക സഹകരണ സംഘങ്ങൾ എന്നിവ സംബന്ധിച്ച നിതി ആയോഗ് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ശേഷം സംസാരിക്കുകയായിരുന്നു ശ്രീ ഓറം

ഒക്ടോബർ ര ിന് സംയുക്ത സംഘടനകൾ നടത്താനിരുന്ന പണിമുടക്കാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബഞ്ച് ഇടക്കാല ഉത്തരവിലൂടെ സ്റ്റേ ചെയ്തത് അവശ്യ സർവ്വീസ് എന്നതും സമരത്തിന് ആവശ്യമായ നടപടിക്രമം പാലിച്ചില്ല എന്നതും പരിഗണിച്ചാണ് ഹൈക്കോടതിയുടെ നടപടി

സി പ്രസിഡന്റായി മുല്ലപ്പള്ളി രാമചന്ദ്രൻ എം പി നാളെ ചുമതലയേൽക്കും

ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്യുന്ന ബംഗ്ലാദേശിന് തുടക്കത്തിലെ തിരിച്ചടി ഏറ്റു

ഈ മത്സരത്തിലെ വിജയിയാണ് ഫൈനലിൽ ഇന്ത്യയുമായി ഏറ്റുമുട്ടുന്നത്